മാനേജ്മെന്റിന്റെ നിയന്ത്രണം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തു

സംവിധാനങ്ങൾ ഒരുക്കാൻ ഉന്നതതലയോഗ തീരുമാനം തിരക്ക് നിയന്ത്രിക്കാൻ തിരുപ്പതി മാതൃകയിൽ ഡിജിറ്റൽ സംവിധാനം ഒരുക്കും

രാഷ്ട്രീയ രംഗം സുരക്ഷിതത്വം ഭീകരവിരുദ്ധപ്രവർത്തനം വ്യാപാരവും നിക്ഷേപവും ശാസ്ത്രസാങ്കേതിക മേഖല ആണവോർജ്ജം സാംസ്കാരിക വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളിലാണ് സഹകരണം മെച്ചപ്പെടുത്തുന്നത്

ഉസ്ബക്കിസ്ഥാനിൽ ഇന്ത്യൻ സർവകലാശാലകളുടെ ശാഖകൾ തുറക്കാനുള്ള സാധ്യതയും ആരായും ഇന്ത്യൻ ഐ റ്റി കമ്പനികളുമായി ചേർന്ന് ഉസ്ബക്കിസ്ഥാനിൽ ഐ

മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പുവരുത്തുന്നതിന് ഉസ്ബക്കിസ്ഥാന് ് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഉസ്ബക്കിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തിയശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേയാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് മുൻഗണനാ അടിസ്ഥാനത്തിലുള്ള വ്യാപാരം സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു

ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളും വീക്ഷണങ്ങളും ചർച്ചചെയ്തു സ്ഥിരതയുള്ള അഫ്ഗാനിസ്ഥാൻ മേഖലയ്ക്ക് അനിവാര്യമാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു

ഐകൃരാഷ്ട്രസഭയുടെ സുരക്ഷസ്മിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന് ഉസ്ബക്കിസ്ഥാൻ പ്രസിഡന്റ് പിറ്റഞ്ഞു

ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവിരങ്ങളുമായി രഞ്ജിത്

ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ വരുന്ന ് പരാതികളുടെ എണ്ണം കൂടിയതായും ഉപരാഷ്ട്രപതി ചൂ ിക്കാട്ടി

മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ച് ജനങ്ങളുടെ അവബോധം വർദ്ധിച്ചതും ദേശീയ മനുഷ്യാവകാശ കമ്മിഷനിലുള്ള വിശ്ചാസവും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള താത്പര്യവുമാണ് ഇത് പ്രകടമാക്കുന്നത് ഭീകരതയെ പ്രതിരോധിക്കാൻ ശക്തവും ഒരുമയോടുമുള്ള പ്രവർത്തനമാണ് വേ ത്

സ്ത്രീശാക്തീകരണമാണ് ഇന്നത്തെ ആവശ്യമെന്നും ശ്രീ വെങ്കയ്യനായിഡു പറഞ്ഞു ഇന്ത്യയിൽ സ്ത്രീകളെ ശക്തി സ്വരൂപിണികളായാണ് എന്നും ക ിരുന്നത് സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങൾ നൽകിയപ്പോഴൊക്കെ അവർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടു ്് സമാധാനവും പുരോഗതിയുമേ ഒത്തു പോകു സംഘർഷ സാഹചര്യത്തിൽ വികസനം നടക്കില്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

സംസ്ഥാനങ്ങൾ അയച്ചു നൽകുന്ന വിവരങ്ങൾ വിലയിരുത്തിയ ശേഷം മറ്റ് നടപടികൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാവോയിസ്റ്റ് പ്രശ്നം ഉൾപ്പെടെയുള്ള സുരക്ഷാ വിഷയങ്ങളും മറ്റ് അനുബന്ധ വിഷയങ്ങളും ചർച്ച കൊൽക്കത്തയിൽ കൂടിയ കിഴക്കൻ മേഖല കൌൺസിൽ യോഗത്തിൽ അദ്ധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പ്രായി മുഖ്യമന്ത്രി മമത ബാനർജി ഝാർഖണ്ഡ് മുഖ്യമന്ത്രി രഖുബർദാസ് ബീഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ കുമാർ മോദി ഒഡീഷ ധനമന്ത്രി ശശിഭൂഷൺ ബെഹ്റ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

ധനകാര്യ മേഖലയെ സാരമായി ബാധിക്കുന്ന സാഹചര്യവും കടവും ് ഈ കമ്പനി സൃഷ്ടിക്കുന്നു സായിരുന്നു കമ്പനിയെ നിയന്ത്രിക്കാൻ പഴയ ബോർഡിനെ മാറ്റി പുതിയ ആറ് അംഗ ബോർഡിനെ ചുമതലപ്പെടുത്തി

കൊടാക് മഹീന്ദ്ര ബാങ്ക് ഉദയ് കൊടക് ടെക് മഹീന്ദ്ര സെബി ഐസിഐസിഐ ബാങ്ക് മേധാവികളും ര ് മുൻ ഐഎഎസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതാണ് പുതിയ ബോർഡ്

ഉത്സവകാലത്ത് കൂടുതൽ പണം ആവശ്യമായി വരുന്നതിനാലാണ് ഇങ്ങനെ ചെയ്യുന്നത് മാസം ര ാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ആഴ്ചകളിൽ ഈ ഗവൺമെന്റ് ബോ ുകൾ വാങ്ങാനുള്ള ലേലം നടക്കും

അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട വിപ്ലവകരമായ ക ത്തലിനാണിത്

ഹോമിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും സർവകലാശാലയിലെ പ്രൊഫസറും ഹോൻജോ കോട്ടോ സർവകലാശാലയിലെ പ്രൊഫസറുമാണ്

നിലയ്ക്കൽ ബേസ് ക്യാമ്പിലും മറ്റു ഇടത്താവളങ്ങളിലും സ്ത്രീകൾക്ക് സൌകര്യം ഒരുക്കും

സ്ത്രീൾക്കായി പ്രത്യേകം ടോയിലറ്റുകളും കുളിക്കടവുകളുമു ാക്കും

ഭക്തജന പ്രവാഹം കണക്കിലെടുത്ത് ദർശനത്തിനും പൂജയ്ക്കുമുള്ള ദിവസങ്ങളും സമയവും വർദ്ധിപ്പിക്കുന്നകാര്യം തന്ത്രിയുമായി ചർച്ചെയ്ത് തീരുമാനിക്കും

കഴിഞ്ഞ വർഷം ആഗസ്റ്റിൽ ഉ ായിരുന്നതിനേക്കാൾ വളർച്ച ഇത്തവണ ഉ ായി

ഒരു ് വിവേചനവുമില്ലാതെ സമഗ്ര വികസനത്തിനായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുകയാണെന്നും വികസനം എന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യത്തിനുമുന്നിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ അകറ്റി നിർത്തിയതായും അദ്ദേഹം പറഞ്ഞു താഴേത്തട്ടിലുളള പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള ചിലവു കുറഞ്ഞ വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു

മഹാത്മാഗാന്ധി അന്താരാഷ്ട്ര ശുചിത്വ കൺവെൻഷനിൽ സംസാരിക്കവെ സ്വച്ച് ഭാരത് പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും ഇതിൽ പങ്കാളികളായതായും പൊതുജനങ്ങളുടെ പ്രതികരണം അത്ഭുതാവഹമായിരുന്നതായും അദ്ദേഹം അറിയിച്ചു

ഇത് സ്ഥാപിക്കുന്നതിനുള്ള താത്പര്യം അറിയിക്കാൻ സംരംഭകരെ ക്ഷണിച്ചിട്ടു ് താങ്ങാവുന്ന ഗതാഗത സംവിധാനത്തിനുള്ള സന്തുലിതമായ ബദൽ മാർഗ്ഗം ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സംവിധാനം ഇത് കർഷകർക്കും സംരംഭകർക്കും ഗുണപ്രദമാകും

ധർമ്മേന്ദ്രപ്രധാൻ ന്യൂഡൽഹിയിൽ ഒരു പരിപാടിയിൽ സംസാരിക്കവേ അറിയിച്ചു

ഭാവനയിൽ മാത്രം കാണാൻ കഴിയുന്ന എണ്ണം കേസുകളാണ് രാജ്യത്തെ കോടതികൾ കൈകാര്യം ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും ശക്തമായ സംവിധാനമാണിത്